ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലേക്കുള്ള പ്രസ്യ പ്രചാരണം സമാപിക്കാൻ ഇനി നാലു ദിവസം മാത്രം

വായ്പാ തട്ടിപ്പുകേസിൽ ഐ

ഐ

ഐ ബാങ്ക് ചെയർ പേഴ്സ്ൺ ചന്ദ കൊച്ചാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു

്വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ റാലികളെ അഭിസംബോധന ചെയ്യുന്നു

കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി നീംഗഞ്ച് ഉജ്ജയിൻ മധ്യപ്രദേശിലെ ഖണ്ഡവാ എന്നിവിടങ്ങളില്ല പ്രചാരണ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും

ഐ

ജനറൽ സെക്രട്ടറി പ്രിയങ്കഗാന്ധി ഭട്ടിൻഡയിൽ അൽപസമയത്തിനകം നടക്കുന്ന പൊതു സമ്മേളനത്തിൽ സംസാരിക്കും തുടൂർന്ന് പഞ്ചാബിലെ പത്താൻകോട്ടിൽ നടക്കുന്ന റോഡ്ട് ്ഷോയിലും ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗറിൽ റാലിയിലും ശ്രീമതി പ്രിയങ്ക പങ്കെടുക്കും

എസ് പി നേതാവ് മായാവ്തി ബല്ലിയയിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

ഗോരഖ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയും ഭോജ്പുരി സിനിമാതാരവുമായ രവികിഷന്റെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ വോട്ട് വിഹിതം പിടിച്ചെടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചെന്നും ശ്രീ ആദിത്യനാഥ് പറഞ്ഞു

സി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ അവകാശപ്പെട്ടു കർണാടകയിലെ കൽബുർഗിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലപ്രഖ്യാപനത്തിനുശേഷം ഒരു തരത്തിലുമുള്ള കുതിരക്കച്ചവടത്തിന് കോൺഗ്രസില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഞാൻ ചായവിൽപ്പനക്കാരനാണെന്ന് പറഞ്ഞ് പാവിപ്പെട്ട ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് അധികാരത്തിൽ എത്തിയിന്രേന്ദ്ര മോദി അവരെ മറക്കുകയായിരുന്നുവെന്നും ശ്രീ

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിവേക് ഭരദാജിന്റെയും ഊർജ സെക്രട്ടറി അജയ് കുമാർ ഭല്ലയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികുമായും സംഘം കൂടിക്കാഴ്ച നടത്തി ഒഡീഷയിൽ ചുഴലിക്കാറ്റ് ഏറെ ദുരിതം വിതച്ചത് പുരി ഖുർദ ജില്ലകളിലാണ്

ലോക വ്യാപാര സംഘടനയുടെ വികസ്വര രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസ്വര രാജ്യങ്ങൾക്ക് നീതി ഉറപ്പാക്കാനായി ലോക വ്യാപാര സംഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇളവുകളും നിയമങ്ങളും അനുസരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഐ

ഐ ബാങ്ക് ചെയർപേഴ്സൺ ചന്ദ കൊച്ചാറിനെ എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു ഭർത്താവ് ദീപക് കൊച്ചാറുമൊത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായ ശ്രീമതി ചന്ദയെ ആറ് മണിക്കൂറോളം ചോദ്യം ചെയ്തു ദീപകിന്റെ കമ്പനിക്ക് നിക്ഷേപമുള്ള വൻകിടകമ്പനികൾക്ക് വൻതുക വായ്പ നൽകിയെന്ന പരാതിയിലാണ് ചോദ്യം ചെയ്യൽ

പൂഞ്ച് ജില്ലയില്ലെ ഹവേലി തെഹ്ഡിലിലെ നിയന്ത്രണരേഖയിൽ പാക് സൈന്യക്ക് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ ക്കേന്ദ്രങ്ങളിലേക്കും ഇന്നലെ വെടിയുതിർത്തായി പ്രതിരോധ് വ്യക്താവ് അറിയിച്ചു ഇന്ത്യൻ സൈനൃം തിരിച്ചടിച്ചു

ഏറ്റുമുട്ടലിൽ ആർക്കും പ്രിക്കേറ്റതായി റിപ്പോർട്ടില്ല

അതിർത്തിയിൽ പാക്കിസ്ഥാന്റെ വെടിനിറുത്തൽ കരാർ ലംഘനം പതിവായ സാഹചര്യത്തിലാണ് സൈനിക മേധാവിയുടെ സന്ദർശനം

ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകനെ സൈനപോര ആശുപത്രിയിലേക്ക് മാറ്റി

സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതിനെതുടർന്ന് ഷോപ്പിയാനിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്

ശ്രീനഗർ നഗര പ്രാന്തത്തിൽ ജമ്മുകശ്മീർ പൊലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത് പൊലീസ് ഇയാളുടെ തലക്ക് രണ്ട് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു

ടി ടി ഇയെ രാജ്യത്ത് അഞ്ച് പ്രിർഷിത്തേക്ക് കൂടി നിരോധിച്ച് കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി

എ നിയമമനുസരിച്ചാണ് തമിഴ് ഭ്രീകര്സംഘടനയായ എൽ

ടി

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ടി ഇയെ ഇന്ത്യയിൽ നിരോധിച്ചത് ശ്രീലങ്ക ആസ്ഥാനമായി പ്ര വർത്തിച്ചിരുന്ന എൽ ടി ടി ഇ ഇന്ത്യയിലെ ഏജന്റുമാരുടേയും സംഘട നയെ പിന്തുണയ്ക്കുന്നവരുടേയും സഹായത്തോടെ പ്രത്യേക തമിഴ് രാഷ്ടം എന്നത് സാധ്യമാക്കാനാണ് സംഘടന ശ്രമിക്കുന്നതെന്നതെ ന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശിയോദ്ഗ്രഥനത്തി നും എതിരാണെന്നും അതിനാലാണ് സംഘടനയെ നിരോധിക്കുന്നതെ ന്നും വിജ്ഞാപനത്തിൽ പറയുന്നു

ഇന്റർനെറ്റ് വഴി ശ്രീലങ്കൻ തമിഴർക്കിടയിൽ ഇന്ത്യ ക്കെതിരായുള്ള സന്ദേശങ്ങൾ എത്തിക്കുകയും എൽ ടി ടി

ടി ടി ഇ മുൻ അംഗ ങ്ങളേയും പിന്തുണയ്ക്കുന്നവരേയും നിരീക്ഷിച്ചതിൽ നിന്ന് ഇവർ ത മിഴ്നാട്ടിൽ നിരോധിത പ്രവർത്തനങ്ങൾ നടത്താനിടയുള്ളതായി വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് സംഘടനയെ നിരോധിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

പകൽ സമയത്തെ കർഫ്യൂവും പിൻവലിച്ചിട്ടുണ്ട്

അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് സാമൂഹിക്ക മാധ്യങ്ങളിലൂടെ ദുഷ്പ്രചരണം നടത്തരുതെന്ന് ഡ്രിപ്യുട്ടി കമ്മീഷണർ കീർത്തി ജാലി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു

കർണാടകയിലെ ധാർവാഡിൽ വീട് ഇടിഞ്ഞ് വീണ് രണ്ട് കുട്ടികൾ അടക്കം മൂന്ന്പേരാണ് മരിച്ചത്

രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിർമാണത്തിലിരുന്ന വീട് തകർന്നാണ് മൂന്ന് പേർ മരിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം

പന്നിപ്പനി ബാധ രാജ്യത്തെ പന്നി വളർത്തൽ കർഷകർക്ക് തിരിച്ചടയായിരിക്കുകയാണ്

കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ നർസിപട്ടണം പൊലീസ് അറസ്റ്റ് ചെയ്തു